സദാശിവം സംസ്ഥാന പൊലീസ് മേധാ വിക്ക് നിർദ്ദേശം നൽകി ആക്ടിവിസ്റ്റുകൾക്ക് ശക്തി തെളിയിക്കാനുള്ള ഇടമല്ല ശബരിമല സന്നിധാന മെന്ന് മന്ത്രി കട കം പള്ളി സുരേന്ദ്രൻ ശബരിമല ദർശനത്തിന് പൊലീസ് സംരക്ഷണ ത്തിലെത്തിയ രണ്ട് യുവതികളെ വിശ്വാസികളുടെ എതിർപ്പിനെത്തുടർന്ന് വതിരിച്ചയച്ചു

ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി വർഗ്ഗീയത വളർത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് ലൈംഗിക പീഡന പരാതികൾ പരിശോധിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ഉടൻ ആഭ്യന്തര സമിതികൾ രൂപീ കരിക്കണമെന്ന് കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി താമരശ്ശേരി ചുരം വഴി ചരക്കുവാഹനങ്ങൾക്ക് ഏർപ്പെ ടുത്തിയ നിരോധനത്തിൽ ഇളവ് വരുത്തി വിജയദശമി ദിനത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു

ജി പി ലോക്നാഥ് ബെഹ്റയുമായി രാജ്ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചക്കിടെ യാണ് ഗവർണർ ഇക്കാര്യം ആവശ്യപ്പെട്ടത്

ശബരിമലയിലെ അസാധാരണ സാഹചര്യങ്ങളെത്തു ടർന്നാണ് ഗവർണർ ഡി ജി പിയെ വിളിപ്പിച്ചത് ആക്ടിവിസ്റ്റുകൾക്ക് ശക്തി തെളിയിക്കാനുള്ള ഇടമല്ല ശബ രിമല സന്നിധാനമെന്ന് മന്ത്രി കടകംപ്ള്ളി സുരേന്ദ്രൻ പറഞ്ഞു വിശ്വാസികൾക്ക് ശബരിമല ദർശനത്തിന് സൌകര്യവും സംര ക്ഷണവും നൽകണമെന്നതാണ് സുപ്രീംകോടതി വിധിയും ഗവൺമെന്റിന്റെ തീരുമാനവും സമരത്തിന്റെ ഭാഗമായി വരു ന്നവർക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത ഗവൺമെന്റിനി ല്ല

ആക്ടി വിസ്റ്റുകളുടെ നിലപാട് സ്ഥാപിച്ചെടുക്കാൻ ഗവൺമെന്റിന് കൂട്ട് നിൽക്കാനാവില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വൃക്തമാക്കി ഇന്ന് രാവിലെ ശബരിമല നടപ്പന്തൽ വരെ എത്തിയ യുവതി കൾ സന്നിധാനത്ത് പ്രവേശിക്കുന്നതിനെതിരെ വിശ്വാസികൾ നടത്തിയ പ്രതിഷേധത്തിന്റെ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ വിശദീകരണം ശബരിമല ദർശനത്തിനെത്തിയ യുവതികൾ യഥാർത്ഥ വിശ്വാസികളാണോ ആക്ടിവിസ്റ്റുകളാണോ എന്ന് പൊലീസ് ശ്രദ്ധിക്കേണ്ടതായിരുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു അവരുടെ ഉദ്ദേശ്യവും പശ്ചാത്തലവും പരി ശോധിച്ച് മതിയായിരുന്നു പൊലീസ് സംരക്ഷണമെന്ന് കട കംപള്ളി അഭിപ്രായപ്പെട്ടു

വന്നവർ ആക്ടിവിസ്റ്റുകളാ ണെന്ന് അറിഞ്ഞപ്പോൾ ഗവൺമെന്റ് പ്രശ്നത്തിൽ ഇടപെ ടുകയായിരുന്നുവെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വെളിപ്പെ ടുത്തി ഭക്തജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെത്തുടർന്ന് ശബ രിമല ദർശനത്തിനെത്തിയ മാധ്യമ പ്രവർത്തക ഉൾപ്പെടെ രണ്ട് യുവതികളെ പൊലീസ് തിരികെ പമ്പയിലെത്തിച്ചു ഐ ജി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അനുനയ ശ്രമ ങ്ങൾ നടത്തി ഇവരെ തിരിച്ചിറക്കുകയായിരുന്നു യുവതി കളിൽ ഒരാൾ തെലങ്കാനയിലെ മാധ്യമ പ്രവർത്തക കവി തയും ഇരുമുടിക്കെട്ടുമായി എത്തിയ യുവതി കൊച്ചി പന മ്പിള്ളി നഗറിലെ രഹന ഫാത്തിമയുമാണ് ഇവരെ പമ്പയി ലെത്തിച്ച ശേഷം പൊലീസ് വാഹനത്തിൽ സുരക്ഷിതി കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അതിനിടെ പതിനൊന്ന രയോടെ മല കയറാനെത്തിയ കഴക്കൂട്ടം സ്വദേശി മേരി സ്വീറ്റിയെ പൊലീസ് കൺട്രോൾ റൂമിലേക്ക് മാറ്റി ആചാരം ലംഘിക്കപ്പെട്ടാൽ സന്നിധാനം അടച്ചിടേണ്ടിവ രുമെന്ന് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരര് അറിയിച്ചു യുവതികൾ എത്തിയാൽ നടയടച്ച് നാട്ടിലേക്ക് പോകുമെന്ന് തന്ത്രി പറഞ്ഞു ശബരിമല യുദ്ധക്കളമാകാതിരിക്കാൻ എല്ലാ വരും വിവേകം കാണിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥി ച്ചു ശബരിമല ക്ഷേത്രത്തിൽ രാവിലെ പ്രികർമ്മികളുടെ പ്രതി ഷേധ സമരം നടത്തി മേൽശാന്തിയുടെയും തന്ത്രിയുടെയും പരികർമ്മികൾ സന്നിധാനത്ത് യുവതീ പ്രവേശം ഉണ്ടാകരു തെന്നാവശ്യപ്പെട്ടാണ് പതിനെട്ടാംപടിക്ക് സമീപം നാമജപ പ്രതിഷേധമാരംഭിച്ചത് ശബരിമലയിൽ ആദ്യമായാണ് പരി കർമ്മികൾ സമരരംഗത്തേക്ക് നീങ്ങുന്നത്

വിശ്വാസികളായ പൊലീസ് ഉദ്യോഗസ്ഥർ ഇത് മനസിലാക്കണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ശബരിമലയെ തകർക്കാൻ ഗൂഢാലോചന നടക്കുകയാ ണെന്ന് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സു രേന്ദ്രൻ പറഞ്ഞു ശബരിമലയിൽ മനപ്പൂർവ്വം കുഴപ്പങ്ങളു ണ്ടാക്കാൻ ശ്രമിച്ചാൽ ഗവൺമെന്റിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറ ഞ്ഞു ആചാരാനുഷ്ഠാനങ്ങളെയും വിശ്വാസികളെയും ഗവൺമെന്റ് വെല്ലുവിളിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കുന്നതിന് മുൻകൈ യെടുക്കില്ലെന്ന് പറഞ്ഞ ഗവൺമെന്റ് അതിൽനിന്ന് പുറ കോട്ട് പോയ കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞ തെന്നും സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല അന്യമത വിശ്വാ സികൾക്കുള്ളതല്ലെന്നും അത്തരം ആളുകളെ തിരുത്താൻ അതത് മതവിഭാഗങ്ങൾ തയ്യാറാകണമെന്നും ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജ യൻ വർഗ്ഗീയത വളർത്താൻ ശ്രമിക്കുകയാണെന്ന് പ്രതി പക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ശബരി മലയിൽ സ്ഥിതി ആളിക്കത്തിക്കുന്ന സമീപനം ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്ഭവ നിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം തിരു വനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല

സുപ്രീംകോടതി വിധി വന്നയുടൻ അത് നടപ്പാ ക്കാൻ ഗവൺമെന്റ് അമിത താല്പര്യം കാണിക്കുകയായി രുന്നു

പുനഃപരിശോധനാ ഹർജി നൽകാൻ ദേവസം ബോർഡ് തയ്യാറായപ്പോൾ അവരെ വിരട്ടി അതിൽനിന്ന് പിന്തിരിപ്പിക്കാൻ എന്ത് സാഹചര്യമാ ണുണ്ടായതെന്ന് അദ്ദേഹം ചോദിച്ചു സംഘ്പരിവാർ ശക്തി കൾ പമ്പയിലും നിലയ്ക്കലിലും അക്രമങ്ങൾ നടത്തിയ പ്പോൾ ഗവൺമെന്റ് നിഷ്ക്രിയമായിരുന്നുവെന്നും പ്രതി പക്ഷ നേതാവ് ആരോപിച്ചു

ജി ശ്രീജിത്തിന്റെയും മറ്റ് പൊലീസ് ഉദ്യോ ഗസ്ഥരുടെയും പേരിൽ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു യൂനിഫോം ധരി ച്ചവർക്കെതിരെയും കേസെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു

ഇക്കാര്യത്തിൽ ഡി ജി പി മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ശബരിമലയിൽ യുദ്ധസമാന മായ സാഹചര്യം നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി സുഖവാ സത്തിലാണെന്നും അദ്ദേഹം ആരോപിച്ചു സുപ്രീംകോടതി വിധി നടപ്പാക്കാൻ ഗവൺമെന്റ് ബാധ്യ സ്ഥമാണെന്ന് മന്ത്രി ഇ

മുഴുവൻ ക്രിമിനലുകളെയും ശ്രബരിമലയിലെത്തിച്ച് ചിലർ ഗവൺമെന്റിനെ ദുർബ്ബലപ്പെടുത്താൻ ശ്രമിക്കുകയാ ണ് എല്ലാ വിഭാഗം വിശ്വാസ്ടികളെയും സംരക്ഷിക്കണമെ ന്നതാണ് ഗവൺമെന്റ് നയമെന്നും അതിനായി ശബരിമല യിൽ പൊലീസ് സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ശബരിമലയിൽ അക്രമമുണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണെന്ന് സ്പീക്കർ പി

സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ശരി തെറ്റു കൾ പണ്ഡിതസമൂഹം തീരുമാനിക്കട്ടെയെന്നും സ്പീക്കർ പറഞ്ഞു

പി നേതാവ് ശോഭാ സുരേന്ദ്രനെ പൊലീസ് കസ്റ്റ ഡിയിലെടുത്തു ഇവർക്കൊപ്പം ഏഴ് മഹിളാമോർച്ച പ്രവർത്ത കരും കസ്റ്റഡിയിലായിട്ടുണ്ട് വടശ്ശേരിക്കരയിൽ റോഡ് ഉപ രോധിച്ചതിനാണ് പൊലീസ് നടപടി ശബരിമലയിൽ മാധ്യമപ്രവർത്തകർക്കുനേരെ നടന്ന കൈയേറ്റത്തിൽ ഇന്ത്യൻ വിമൻസ് പ്രസ് കോർപ്പ് നടുക്കം അറിയിച്ചു ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പ്രസ് കോർപ് സംസ്ഥാന് ഗവൺമെന്റി നോടാവശ്യപ്പെട്ടു ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതിയിൽ തിരുവി താംകൂർ ദേവസ്ഥം ബോർഡ് പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ബോർഡിന്റെ നിർണായക യോഗം ഉച്ചകഴിഞ്ഞ് തിരുവനന്ത പുരത്ത് ചേരും ലൈംഗിക പീഡന പരാതികൾ പരിശോധിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ ഉടൻതന്നെ ആഭ്യന്തര സമിതികൾ രൂപീ കരിക്കണമെന്ന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി മനേക ഗാന്ധി ആവശ്യപ്പെട്ടു

സാമൂഹ്യ പ്രവർത്തക തൃപ്തി ദേശായിയെ പൊലീസ് കസ്റ്റഡിയിലെടുത്തു ഷിർദ്ദി ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി ഇന്ന് സന്ദർശനം നടത്താനിരിക്കെയാണ് തൃപ്തിയെ അറസ്റ്റ് ചെയ്തത്

എന്നാൽ കണ്ടെയ്നറുകൾ യാതൊരു കാരണവശാലും കടത്തിവിടില്ലെന്ന് മന്ത്രി പറഞ്ഞു

പുതിയ സ്കൂളുകൾക്ക് സി ബി എസ് ഇ അംഗീകാരം ലഭി ക്കുന്നതിന് മാനവശേഷി വികസന മന്ത്രാലയം മാനദണ്ഡ ങ്ങളിൽ മാറ്റംവരുത്തി സംസ്ഥാനങ്ങൾക്ക് പകരം ജില്ലാ വിദ്യാ ഭ്യാസ ഓഫീസറാകും ഇനിമുതൽ സ്കൂളുകൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകുകയെന്നും ഇതിന്റെ അടിസ്ഥാനത്തിലാവും സ്കൂളിന് അംഗീകാരം ലഭിക്കുകയെന്നും മാനവശേഷി വിക സന മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ന്യൂഡൽഹിയിൽ അറിയി ച്ചും ഇന്ത്യൻ റെയിൽവേ സ്വന്തമായി മെട്രോ കോച്ചുകൾ നിർമ്മിക്കും റെയിൽവേയുടെ റായ് ബറേലിയിലെ ഫാക്ട റിയിൽ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് കോച്ചുകൾ നിർമ്മിക്കുന്നതെന്ന് റെയിൽവേ കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

ക്ഷേത്രങ്ങളട്ടക്കം ആരാ ധനാലയങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികളെ എഴുത്തിനിരുത്താൻ വൻ തിരക്കായിരുന്നു തിരൂർ തുഞ്ചൻപ റമ്പ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ചോറ്റാനിക്കര ദേവീ ക്ഷേത്രം പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം കോട്ടയം പനച്ചിക്കാട്ട് ക്ഷേത്രം തിരുവനന്തപുരം ഐരാണിമുട്ടം തുഞ്ചൻ സ്മാരകം കോഴിക്കോട് അഴകൊടി ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കൂടുതൽ കുട്ടികളെത്തിയത് കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന എഴുത്തിനിരുത്തിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധ രൻ എന്നിവർ നേതൃത്വം നൽകി

വിജയദശമിയോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവ്വമായ തിര ക്കാണ് അനുഭവപ്പെടുന്നത് വിദ്യാരംഭം പ്രമാണിച്ച് ക്ഷേത്രങ്ങ ളിലും വിവിധ സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുരുന്നുകളെ എഴുത്തിനിരുത്തൽ നടന്നു